ഇന്ത്യൻ പുരുഷ വനിത ടീമുകൾക്ക് തോൽവി

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്ദ്ഹാം

ചെന്നെയിൽ ഇ

ചെന്നൈ ടൃച്ചി വിമാനത്താവളങ്ങളുടെ നവീകരണ വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

സി

എല്ലിന്റെ എന്നോർ തീരദേശ ടെർമിനൽ തുറമുഖത്തുനിന്നും ചെന്നൈ മണാലി എണ്ണ ശുദ്ധീകരണശാലയിലേയ്ക്ക് അസംസ്കൃത എണ്ണ എത്തിക്കുന്ന തീരദേശ പൈപ്പ് ലൈൻ എന്നിവ പ്രധാനമന്ത്രി കമ്മീഷൻ ചെയ്തു

കൃഷ്ണപട്ടണത്ത് ബി

ഈ പദ്ധതികൾ ആന്ധ്രാപ്രദേശിന്റെ മാത്രമല്ല രാജൃത്തിന്റെ മൊത്തം ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമാണെന്ന് ശ്രീ

ഇത്തരം പദ്ധതികൾ വൻതൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്ര ഗവൺമെന്റിന്റെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പ്രധാന പങ്കാളികളാണ് അക്ഷയപാത്ര ഫൌണ്ടേഷൻ ഇസ്കോൺ വിഭാഗത്തിന്റെ ആചാര്യനായ സ്രില പ്രഭുപദിന്റെ വിഗ്രഹത്തിൽ പ്രധാനമന്ത്രി നാളെ പുഷ്പാർച്ചന നടത്തുമെന്നും ഔദ്യോഗിക കുറിപ്പിൽ വൃക്തമാക്കുന്നു

ഇന്നലെ എട്ട് മണിക്കൂർ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു

കേസുമായി ബന്ധപ്പെട്ട് മുൻ രാജ്യസഭാ അംഗവും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ കുനാൽഘോഷും സി ബി ഐ യ്ക്ക് മുന്നിൽ ഹാജരായി നേരത്തെ രാജീവ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ചിട്ടി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കുനാൽഘോഷിനെ അറസ്റ്റ് ചെയ്തശേഷം ജാമ്യത്തിൽ വിട്ടിരുന്നു

രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ പ്രധാന്ത്മന്ത്രി നരേന്ദ്രമോദിയെ വൃക്തിപരമായി അധിഷേപിക്കാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്നും ശ്രീ

പരീക്ഷയിൽ പരാജയപ്പെട്ട വിദ്യാർത്ഥിക്ക് സമർത്ഥനായ വിദ്യാർത്ഥിയോട് തോന്നുന്ന അസൂയയാണ് രാഹുൽ ഗാന്ധിയുടെതെന്നും ശ്രീ ജെയ്റ്റ്ലി കുറ്റപ്പെടുത്തി

പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ഉപഭോഗത്തിൽ ഇന്ത്യയ്ക്ക് മൂന്നാം സ്ഥാനമാണ് ഉള്ളതെന്ന് പെട്രോളിയം പ്രകൃതി വാതക വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രദാൻ പറഞ്ഞു

ഗവൺമെന്റ് ജോലികളിൽ അഞ്ച് ശതമാനം സംവരണം ആവശ്യപ്പെട്ടാണ് ഗുജറുകൾ പ്രക്ഷോഭം നടത്തുന്നത്

പ്രക്ഷോഭത്തെ തുടർന്ന് കുഴിഞ്ഞ രണ്ട് ദിവസമായി ഡൽഹി മുംബൈ റെയിൽ ക്യ്ത്ത്ഗതം തടസ്സപ്പെട്ടു പല ട്രെയിനുകളും വഴിതിരിച്ചു വിട്ടു്

ഐ ഐ യുടേയും നേതൃത്വത്തിൽ ഹരിദ്വാറിൽ നടന്ന മൂന്നു ദിവസത്തെ ആരോഗ്യ മേളയ്ക്ക് സമാപനം ആയൂർവേദം യോഗ യുനാനി സിദ്ധ ഹോമിയോ ചികിത്സാ രീതികളെ കുറിച്ച് അവബോധം വളർത്തുക സംസ്ഥാനത്തെ ജനങ്ങളുടെ ജീവിത രീതിയുമായി ഇവയെ ബന്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മേള സംഘടിപ്പിച്ചത്

മേഖലയിൽ തീവ്രവാദികളുടെ സാന്നിദ്ധ്യമുണ്ടെന്നുള്ള വിവരത്തെ തുടർന്ന് സേന നടത്തിയ തെരച്ചിലിനിടെയാണ് വെടിവെയ്പ് ഉണ്ടായത് ഒളിച്ചിരുന്ന തീവ്രവാദികൾ സുരക്ഷാസേനാംഗങ്ങൾ നേരെ വെടി ഉതിർക്കുകയായിരുന്നു സേനാംഗങ്ങൾ തിരിച്ചും വെടി ഉതിർത്തു

കാലാവസ്ഥ മെച്ചപ്പെട്ട ശ്രേഷ്ട്ര മാത്രമേ ഇതുവഴിയുള്ള ഗതാഗതം പുനസ്ഥാപിക്കൂ എന്ന് ക്കഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു അടുത്ത രണ്ട് ദിവില്പം കൂടി പ്രതികൂല കാലാവസ്ഥ തുടരുമെന്നാണ് റിപ്പോർട്ട്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജനങ്ങൾക്ക് ബസന്ത്പഞ്ചമി ആശംസകൾ നേർന്നു

ഭവനങ്ങളിലും വിദ്യഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാദേവതയായ സരസ്വതി വിഗ്രഹങ്ങളിൽ പ്രത്യേക പൂജകൾ നടത്തി

ഹാമിൽട്ടണിലാണ് പരമ്പരകളിലെ അവസാന മത്സരങ്ങൾ നടന്നത് രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിലിറങ്ങിയ ഇന്ത്യൻ പുരുഷ ടീം നാല് റൺസിനാണ് ന്യൂസിലന്റിനോട് പ്പ്രാജയപ്പെട്ടത്

ഇതോടെ ന്യൂസിലന്റ് മൂന്നു മത്സരങ്ങളുടെ പരമ്പര തൂത്തുപ്പാരുകയായിരുന്നു

എ ഇ യിൽ മത്സരിക്കും

ഭുവനേശ്വറിൽ നടക്കുന്ന മത്സരത്തിൽ ഫൈനൽ സ്പപ്നങ്ങളുമായാണ് ഇന്തൃ ഇറങ്ങുന്നത്

മാരാമൺ പമ്പ മണപ്പുറത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോ

ഫിലിപ്പോസ് മാർത്തോമ വലിയ മെത്രാ പോലിത്തയുടെ പ്രാരംഭ പ്രാർത്ഥനയോടെയാണ് ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചത്

ന്യൂസിലാന്റിലെ വേയ്ക്ക് ഫീൽഡിലുണ്ടായ കാട്ടുതീയെ തുടർന്ന് ആയിരക്കണക്കിന് ജനങ്ങളെ പ്രദേശത്ത് നിന്ന് ഒഴിപ്പിച്ചു

ഈയാഴ്ച കൂടി വരണ്ട കാലാവസ്ഥ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറിയിച്ചു

പേരെ കൂടുതൽ പേർ കെട്ടിടാവശിഷ്ടങ്ങൾക്കുള്ളിൽ കുടുങ്ങിയതായാണ് റിപ്പോർട്ട്

അനധികൃത നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം

ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പ്രദർശിപ്പിക്കുന്ന പവലിയൻ ബെർളിനിൽ സജ്ജമാക്കിയിട്ടുണ്ട്

വിവിധ രാജ്യിങ്ങളിൽ നിന്നുള്ള ചലച്ചിത്ര പ്രവർത്തകരുമായി ഇന്ത്യൻ പ്രതിനിധികൾ കൂടിക്കാഴ്ച നടത്തി